അടുത്ത അധ്യയന വർഷം പാഠ്യക്രമത്തിലും പഠന സമയത്തിലും കുറവു വരുത്തുന്നതിനുള്ള സാധൃത കേന്ദ്രം ആരായും

കോവിഡ് പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി സെപ്തംബർ വരെ നീട്ടി

വർഷകാല ട്രോളിംഗ് നിരോധനത്തിന് കേരളത്തിൽ തൂടക്കം മധ്യ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യം

പരിശോധനകൾ വർദ്ധിപ്പിക്കുക വിഭവങ്ങളുടെ കുറവ് പരിഹരിക്കുക മരണനിരക്ക് കുറയ്ക്കുക രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നതിനെടുക്കുന്ന സമയം ദീർഘിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ സംഘം ശ്രദ്ധ പതിപ്പിക്കും

മന്ത്രിമാരായ ഹർദ്ദീപ് സിംഗ് പുരി നിത്യാനന്ദ് റായ് മൻസുഖ് മാണ്ഡവ്യ അശ്വനികുമാർ ചൌബേ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ചെറിയ കാലയളവിനുള്ളിൽ ഇരുപതിനായിരം കോടി രൂപ വായ്പ അനുവദിക്കാനുള്ള ബാങ്ക് മേധാവിമാരുടെ ശ്രമത്തെ മന്ത്രി അഭിനന്ദിച്ചു നടപടിക്രമങ്ങൾ ലളിത്മാക്കി ബ്രാഞ്ച് തലങ്ങളിൽ ഉദ്യോഗസ്ഥർ പദ്ധതി നടത്തിപ്പിന് ക്മുൻ്കൈയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു

അധ്യാപകരിൽ നിന്നും രക്ഷാകർത്താക്കളിൽ നിന്നും പരാതികൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണിത്

ഭാവിയിലെ ആവശ്യങ്ങൾക്കായി കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ ഒരുക്കമാണെന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ് കുമാർ യാദവ് പറഞ്ഞു

ബ്രസീലാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാമത്

എ

അബുദാബിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്

നാലുഘട്ടമായാണ് സ്കൂളുകൾ തുറക്കുക

ക ്ര്ശീലങ്കയിൽ പേരാണ് ചികിത്സയിലുള്ളത്

നിതിൻ ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണപ്രദേശങ്ങൾക്കും ഗതാഗതമന്ത്രാലയം മാർഗ നിർദ്ദേശം നൽകി പെർമിറ്റ് ഫീസ് നികുതി രേഖകൾ പുതുക്കൽ എന്നിവയ്ക്കുള്ള സമയമാണ് നീട്ടിയത്

ആർ ഒ യിലും അനുബന്ധ സൌകര്യങ്ങളിലും സ്വകാര്യ മേഖലയ്ക്ക് പങ്കാളിത്തം നൽകിയത് അവയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ

രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിൽ ബഹിരാകാശ രംഗത്തുണ്ടായ നേട്ടങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി മോദി സർക്കാരിന്റെ ആത്മ നിർഭർ ഭാരത് പ്രഖ്യാപനം ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കും

സാറ്റ്ലൈറ്റും ബഹിരാകാശ സേവനങ്ങളും സ്വകാര്യ കമ്പനികൾക്കും അനുവദിക്കും

ട്രോളിംഗ് നിരോധനത്തിന്റൈ ഭാഗമായി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി ഫിഷറീസ് അധികൃതർ ചങ്ങല ബന്ധിച്ചു

നിരോധനം ബാധകമല്ലാത്ത വള്ളങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യങ്ങളുടെ വിപണനത്തിന് കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ട്രോളിങ് നിരോധന കാലയളവിൽ ജില്ലയിൽ നടപ്പിലാക്കേണ്ട ക്രമീകരണങ്ങൾ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ കൂടിയ യോഗം അവലോകനം ചെയ്തു എറണാകുളം ജില്ലയിലെ മുനമ്പം ഫോർട്ട് കൊച്ചി വൈപ്പിൻ മേഖഖലയിൽ കൺട്രോൾ റൂമുകളും രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ബോട്ടുകളും സജ്ജമായി

പാലക്കാട് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഇട്ടീമിന്ന്ലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്